വാർത്ത വ്യാജമെന്ന് കേന്ദ്ര് സ്ർക്കാർ

എസ്

സി മുംബൈ സിറ്റി പോരാട്ടം

നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടരക്കോടിയിലധികമാണ്

എന്നാൽ ആശങ്ക പരത്തി കൊറോണയുടെ ദക്ഷിണാഫ്രിക്കൻ വകഭേദം ബ്രിട്ടനിൽ കണ്ടെത്തി

ഗുജറാത്തിൽ സജീവമായ കേസുകൾ അയ്യായിരത്തിന് താഴെയാണ്

ബ്ിൂഐ തീരുമാനിച്ചെന്ന മാധ്യമവാർത്തയെ തളളി കേന്ദ്രസർക്കാർ

ഇത്തരത്തിൽ യാതൊരു തീരുമാനങ്ങളും സ്ഥീകരിച്ചിട്ടില്ലെന്നും ആർ

കേഡറ്റുകൾ രാജ്പഥിൽ പരേഡ് നടത്തുമ്പോൾ എല്ലാ ഇന്ത്യാക്കാരിലും അത് ആവേശം നിറക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന എൻ സി സി എൻ എസ് എസ് കേഡറ്റുകളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം രാജൃത്തിന്റെ സ്വാതന്ത്രൃത്തിനായി ഒന്നും ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും രാജ്യം ശക്തമാക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യണമെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു

ആകാശവാണിയിലൂടെയും ദൂരദർശനിലൂടെയും വൈകുന്നേരം ഏഴ് മണി മുതൽ പരിപാടി ലഭ്യമാകും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷ് ഭാഷയിലും പ്രസംഗം കേൾക്കാം പ്രാദേശിക ഭാഷകളിലും പ്രക്ഷേപണം ഉണ്ടായിരിക്കും

സ്റ്റാർട്ടപ്പുകളുടെ നൈപുണ്യ വികസനത്തിനായുള്ള നൂതന സംരംഭങ്ങൾക്കായി നിതി ആയോഗിന്റെ ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ സംസ്ഥാനം വിജയം ക്ടൈവരിച്ചതായി മഹാരാഷ്ട്ര നൈപുണ്യ വികസന തൊഴിൽ സംരംഭക മുത്തി നവാബ് മാലിക് പറഞ്ഞു

ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യാതിഥിയാകും വോട്ടർമാരുടെ ശാക്തീകരണം സുരക്ഷിതത്വം ജാഗ്രത എന്നിവയാണ് ഈ വർഷത്തെ ദേശീയ സമ്മതിദായക ദിനത്തിന്റെ പ്രമേയം വോട്ടർമാർക്ക് ഇലക്ട്രോണിക് തിരിച്ചറിയൽ കാർഡ് നൽകുന്ന പരിപാടി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വെർചലായി നിർവ്വഹിക്കും

അത്തരത്തിൽ ചില സംഭവങ്ങൾ പരിപാടിയിലൂടെ പരാമർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതുവഴി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പ്രാദേശിക സമൂഹങ്ങളുടെയും വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനുമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത് സാധുവായ പാസ്പോർട്ട് കൈവശമുള്ള എല്ലാവർക്കും രാജ്യത്ത് വിനോദസഞ്ചാരം നടത്താം എന്നാൽ സന്ദർശനത്തിനു മുമ്പ് അവരുടെ പ്രാദേശി ഇന്ത്യൻ എംബസിയിലോ കോൺസുലേറ്റിലോ യാത്രാ വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കണം കോവിഡ് വ്യാപനത്തെ തുടർന്ന് സന്ദർശനം താൽക്കാലികമായി നിർത്തലാക്കിയിരുന്നെങ്കിലും പിന്നീട് നിയന്ത്രണങ്ങളോടെ ഭാഗികമായി അനുവദിക്കുകയായിരുന്നു സാഹസിക വിനോദ സഞ്ചാര രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയിട്ടതായും വിവിധ കാരണങ്ങളാൽ അവ അനിശ്ചിതത്വ ത്തിലാണെന്നും പദ്ധതി നടപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ളാദ് സിംഗ് പട്ടേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി ദേശീയ ബാല പുരസ്കാർ പദ്ധത്തിപ്പ്കാ്രം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കാണ് കേന്ദ്ര സർക്കാർ ഈ പുരസ്കാരം നൽകുന്നത് കേന്ദ്ര വനിതാശ്ശിശ്രുവികസന മന്ത്രിയും ചടങ്ങിൽ പങ്കെടുക്കും

എൽ ഫുട്ബോളിൽ ഇന്നലെ നടന്ന രണ്ട് മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു ജംഷഡ്പൂർ ഹൈദരാബാദ് മത്സരം ഗോൾരഹിതമായും ബംഗളുരു ഒഡിഷ മത്സരം ഓരോ ഗോൾ വീതം നേടിയുമാണ് സമനിലയിൽ അവസാനിച്ചത് ഇന്ന് ചെന്നൈയിൻ എഫ് സി മുംബൈ സിറ്റിയെ നേരിടും

മേളയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഉത്തരാഖണ്ഡ് സർക്കാരിനെ അറിയിക്കണം അതത് സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ കോളേജോ ജില്ലാ ആശുപത്രിയോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റോ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്

ശനിയാഴ്ച ആരംഭിച്ച ദ്വിദിന സമ്മേളനം കേന്ദ്രമന്ത്രി അമിത് ഷായാണ് ഉദ്ഘാടനം ചെയ്തത്